ഡൽഹി ഹൈക്കോടതിപ്പിധ് ചോദ്യം ചെയ്ത മുതിർന്ന കോൺഗ്രസ് നേതാപ്പിച്ചി

റൺസിന്റെ കൂറ്റൻ വിജയം അജിങ്കൃരഹാനെ കളിയിലെ കേമൻ

ബിയാറിറ്റ്സിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ആഗോളതാപനം കാലാവസ്ഥാവ്യതിയാനം ജൈവവൈവിധ്യം നികുതിവ്യവസ്ഥ ഡിജിറ്റൽ പരിവർത്തനം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കും

ഇരുനേതാക്കളും തമ്മിലുള്ള വ്യക്തിബന്ധത്തിന്റെ പ്രപ്രീഫലനവും ഇന്ത്യയെ പ്രധാന സാമ്പത്തിക ശക്തി എന്ന നില്യ്യിൽ അംഗീകരിക്കുന്നതിന്റെ തെളിവുമാണ് ഈ ക്ഷണമെസ്സ് പ്പ് ദേശകാര്യമന്ത്രാലയം അറിയിച്ചു ഫ്രാൻസ് യു എ ഇ ബഹ്റ്റീൻ എന്നീ രാഷ്ട്രങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാന്നമന്ത്രി ഇന്നലെ മനാമയിൽ നിന്നും ബിയാറിറ്റ്സിൽ എത്തിയത് ഉച്ചകോടിക്ക് മുന്നോടിയായി ശ്രീ നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്സുമായും കൂടിക്കാഴ്ച നടത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ വ്യാപാരം നിക്ഷേപം പ്രതിരോധം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞ മാസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ബോറിസ് ജോൺസണുമായുള്ള ശ്രീ നരേന്ദ്രമോദി യുടെ ആദ്യ കൂടിക്കാഴ്ചയാണിത് പ്രധാനമന്ത്രിയും യു എൻ സെക്രട്ടറി ജനറലുമായി ഉഭയകക്ഷി താൽപ്പര്യമുള്ള നിരവധി വിഷയങ്ങളിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ട്വീറ്റ് ചെയ്തു ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടിയിലെ ഇന്ത്യയുടെ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരുനേതാക്കളും ചർച്ച നടത്തിയതായി വിദേശകാരൃമന്ത്രാലയ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യസുരക്ഷ ഭീകരവാദ വിരുദ്ധ പോരാട്ടം എന്നീ മേഖലകളിൽ പരസ്പരണ സഹകരണം വർദ്ധിപ്പിക്കാനും ഇരുരാജ്യങ്ങളും ധാരണയിലെത്തി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസാ അൽ ഖാലിഫയുമായും ബഹ്റൈൻ പ്രധാനമന്ത്രി ഖാലിഫ ബിൻ സൽമാൻ അൽ ഖാലിഫയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് സംയുക്ത പ്രസ്താവന നടത്തിയത്

എക്സ് മീഡിയ കേസിൽ മുൻ ്കൂ്ട്ർ ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ മുൻക്കേന്ദ്രമ്ന്ത്രിയും മുതിർന്ന കോൺഗ്രസ്സ് നേതാവുമായ പി ചീദ്ബ്രം സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണ്ടുക്കും ്കേസിൽ സിബിഐ യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടരേറ്റും അന്വേഷണം നടത്തിവരികയാണ് ചോദ്യം ചെയ്യലിനായി അദ്ദേഹത്തെ ഇന്നുവരെ സിബിഐ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കഴിഞ്ഞ വ്യാഴ്ച്ച പ്രത്യേക കോടതി ഉത്തരവിട്ടിരുന്നു കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും

ഇന്ത്യയും തായ്ലന്റും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം ബാങ്കോക്കിൽ നടക്കുന്ന ഇന്തോ പസഫിക് മേഖലയിലെ പ്രതിരോധ മേധാവികളുടെ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും

കോയമ്പത്തൂരിൽ നാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇവരെ വിട്ടയച്ചത് ഭീകരവാദബന്ധം സംശയിച്ച് ശനിയാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ ചോദ്യം ചെയ്തത് ശ്രീലങ്കയിൽ നിന്നും ആറംഗ ഭീകരസംഘം തമിഴ്നാട്ടിൽ എത്തിയെന്ന റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് വ്യാപക അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിൽ സുരക്ഷ കർശനമാക്കി തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളായ ധനുഷ്കോടി രാമേശ്വരം എന്നിവിടങ്ങളിൽ നേവി തീരസംരക്ഷണസേനാ വിഭാഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്

ഇതിനിടെ ശ്രീനഗറിലെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൽ സ്ഥാപിച്ചിരുന്ന സംസ്ഥാന പതാക അധികൃതർ നീക്കം ചെയ്തു

കശ്മീരിലെ സാഹചരൃങ്ങൾ സമിതി വിലയിരുത്തുമെന്ന് കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി ആകാശവാണിയോട് പറഞ്ഞു

കേടുപാടുകൾ ഉണ്ടായ സാഹചര്യത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചിറ നവീകരിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു പ്രദേശത്ത് ദേശീയ ദുരന്തപ്രതികരണ സേനയെയും സൈന്യത്തെയും മുൻകരുതൽ എന്ന നിലയിൽ വിന്യസിച്ചിട്ടുണ്ട്

സിന്ധുവിന് രാജ്യത്തിന്റെ അഭിനന്ദനം ലോകചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സ്പ്രിന്ധു

സ്വിറ്റ്സർലന്റിലെ ബേസലിൽ ന്നട്ന്ന ഫൈനലിൽ ജപ്പാൻതാരം നൊസോമി ഒക്കുഹാരൃഷ്ട് ്രന്റ്രിട്ടുള്ള സെറ്റുകൾക്കാണ് സിന്ധു പരാജയപ്പെടുത്തിയത്

ഇത് മൂന്നാം തവണയാണ് സിന്ധു ലോക ബ്ലാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കിട്ടുനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധമന്ത്രി രാജ്നാഥ് ്സിങ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ കായികമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ്സ് അദ്ധ്യക്ഷ സോണിയ ഗാന്ധി എന്നിവർ പി വി സിന്ധുവിനെ അനുമോദിച്ചു

എഫ് പാരാ വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ എസ്

ഇംഗ്ലണ്ടിന്റെ ഡാനിയേൽ ബേദലിനെ തോൽപ്പിച്ചാണ് പ്രമോദ് ഭഗത് വിജയം നേടിയത് ചാമ്പ്യൻഷിപ്പിലെ ഭഗതിന്റെ രണ്ടാമത്തെ സ്വർണ്ണനേട്ടമാണിത് പുരുഷ ഡബിൾസിൽ ഭഗതും തരുൺ ധില്പനും ചേർന്ന് സ്വർണ്ണം നേടിയിരുന്നു

അജിങ്ക്യരഹാനെ കളിയിലെ കേമൻ

രണ്ടാം ഇന്നിംഗ്സിൽ വെറും ഏഴ് റൺ വിട്ടുകൊടുത്ത് ജസ്പ്രീത് ബൂംമ്ര അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി

ബാറ്റിംഗ് തുടങ്ങി പ്രത്താം പന്തിൽ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയ വെസ്റ്റിൻഡീസിസ്റ്റ് പ്പുന്നീട് തലപൊക്കാനായില്ല

ന്യൂസ് ഡെസ്ക് ആകാശവ്ളണി

തെക്കൻ നഗരമായ ജിസാൻ ലക്ഷ്യമാക്കിയെത്തിയ ആറു മിസൈലുകൾ സൌദി തകർത്തു ജനവാസമേഖല ലക്ഷ്യമാക്കിയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ആർക്കും പരിക്കുണ്ടായതായി റിപ്പോർട്ടില്ല

ആമസോൺ വനത്തിൽ പടർന്നു പിടിക്കുന്ന തീയിൽ ലോകത്താകമാനം ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്

സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകളിലേക്ക് മൂന്നു മുന്നണികളും കടക്കും യു ഡി എഫ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ജോസ് കെ പറഞ്ഞു കേരളാ കോൺഗ്രസ് എം

പാലാ നഗരസഭൂയുർ പ്രിന്ത്രണ്ട് പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് പാലാ നിയമസഭാ മണ്ണുല്പം

ലൈഫ് റീബിൾഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി എറണാകുളം ജില്ലയിലെ വടക്കേക്കരയിൽ നിർമാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

ഐ എ അടക്കമുള്ള വിവിധ ഏജൻസികൾ ഇവരെ ചോദ്യംചെയ്തു